ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച നടപ്പു സാമ്പത്തിക വർഷം മുതൽ പുതിയ നികുതി നിരക്ക് ബാധകമാകും

നിക്ഷേപവും വളർച്ചയും പ്രോത്സാഹിപ്പിക്കു ന്നതിനായാണ് നികുതി കുറയ്ക്കുന്നതെന്നും നിർമലാ സീതാരാമൻ പറഞ്ഞു കോർപ്പറേറ്റ് നികുതി കുറച്ചതിനു പിന്നാലെ ഓഹരി വിപ ണികളിൽ വൻമുന്നേറ്റം പ്രകടമായി

സമ്പദ് വൃവസ്ഥയ്ക്ക് വളരെയേറെ ഗുണകരമായ ശക്തമായ ചുവടുവെപ്പാണി തെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമാന്ദൃം മറികടക്കാൻ ഗവൺമെന്റ് ആവിഷ്ക്കരിച്ച പദ്ധതികളിലൂടെ സാമ്പത്തിക വർഷത്തിന്റെ അടുത്ത ദൈമാസ കാലയളവിൽ ആഭ്യന്തര ഉത്പാദനം മെച്ചപ്പെടുമെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു സാമ്പത്തികമേഖലയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചശേഷം കൂടുതൽ നിരക്കിളവുകൾ ഉണ്ടായേക്കു മെന്നും അദ്ദേഹം സൂചന നൽകി തൊഴിൽ ഭൂവിനിയോഗ മേഖലകളിൽ ഘടനാപരമായ പരിഷ്കരണങ്ങൾ നടപ്പാക്ക ണമെന്ന നിർദ്ദേശം ശക്തികാന്തദാസ് ആവർത്തിച്ചു

രാജ്യത്ത് എല്ലായിടത്തും ക്യാംപയിനുകൾ നടത്തും യഥാർത്ഥ വസ്തുത്കൾ മറച്ചു വയ്ക്കാനാണ് ഇടതുപക്ഷം അടക്കമുള്ളവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പ്രളയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് പലതും മറയ്ക്കാൻ ശ്രമിക്കുക യാണെന്ന് മുരളീധരറാവു പറഞ്ഞു ബിജെപിയെ സംബന്ധിച്ച് കേരളം പ്രധാന സംസ്ഥാനമാണെന്നും കേരളത്തെ പ്രത്യേകമായി പരിഗണിക്കുമെന്നും അദ്ദേഹം വൃക്തമാക്കി

നാളെ ശ്രീനാരായണഗുരു സമാധി പ്രമാണിച്ച് മൂന്ന് മുന്നണികളും ഒരു ദിവസം മുമ്പെ പരസ്യപ്രചാരണം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാ യിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ആവർത്തി ക്കാമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് എന്നാൽ അട്ടി മറി വിജയമാണ് പാലായിൽ ഇടതുമുന്നണി പ്രതീക്ഷിക്കു ന്നത്

തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്

ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന നീക്കം എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാ മെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു പാലം നിർമാണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നേരിടാൻ താൻ ഒരുക്ക മാണെന്ന് ഇബ്രാഹിംകുഞ്ഞ് തന്നെ കഴിഞ്ഞ ദിവസം വൃക്ത മാക്കിയതാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു

കരാറുകാർക്ക് മുൻകൂറായി പണം നൽകിയതിൽ യാതൊരു അസ്വാഭാവി കതയും ഇല്ലെന്നും ബജറ്റിൽ വകയിരുത്താത്ത പദ്ധതി കൾക്കും പണം നൽകാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചോദൃം ചെയ്യലിന് ഹാജരാകാൻ തനിക്കിതുവരെ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി വിജിലൻസ് അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സ്വന്തം വസതി യിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്

പാലാരിവട്ടം പാലം അഴിമതിയിൽ പ്രതിപക്ഷം ബേജാറാകുന്നത്തെിനാണെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ അവർക്ക് അഴിമതിയിൽ പങ്കുണ്ടെന്ന് അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് വ്യക്തമാകുന്നതെന്നും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണയോഗ ത്തിൽ കോടിയേരി പറഞ്ഞു

ഗവൺമെന്റ് കമ്പനി എന്ന രീതിയിലാണ് കിയാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഡീംഡ് കമ്പനികൾക്ക് ഓഡിറ്റ് നിർബ ന്ധമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാരൃത്തിൽ മുൻക യ്യെടുക്കണമെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു സി എ ജി ഓഡിറ്റിനെ എന്തിനാണ് ഗവൺമെന്റ് ഭയക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു

സുപ്രീംകോടതിവിധിപ്രകാരമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ മുന്നോട്ടു പോകു ന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഉച്ചകഴിഞ്ഞ് സുപ്രീംകോ ടതിയിൽ ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നല്കും കോടതിവിധി നടപ്പാക്കുന്ന കാര്യത്തിൽ സ്റ്റാന്റിംഗ് കോൺസൽ ജി പ്രകാശവുമായി ചീഫ് സെക്രട്ടറി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി രാവിലെ നടന്ന ചർച്ചയിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉഷ ടൈറ്റസും പങ്കെടുത്തു

ജലക്ഷാമം അനുഭവിക്കുന്ന മലപ്പുറം ആല പ്പുഴ ജില്ലകളിലാണ് കൂടുതൽ പദ്ധതികൾ

പൊന്നാനി താനൂർ വളാഞ്ചേരി മഞ്ചേ രി കൊണ്ടോട്ടി എന്നിവിടങ്ങളിലെ ജലക്ഷാമത്തിന് പരി ഹാരം കാണുന്നതിനാണ് പദ്ധതികൾ

പി എസ് സി പരീക്ഷകൾ മലയാളത്തിൽകൂടി നടത്താൻ തീരുമാനിച്ച സാഹചര്യത്തിൽ വിവിധ വിഷയങ്ങളിലെ സാങ്കേതിക പദാവലി വിപുലപ്പെടുത്താൻ പൊതു വിദ്യാ ഭ്യാസ വകുപ്പ് എസ് സി ഇ ആർ ടി യോട് നിർദ്ദേശിച്ചു സ്കൂൾ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന എല്ലാ വിജ്ഞാന ശാഖകളിലും സാങ്കേതിക പദാവലി വികസിപ്പി ക്കുന്ന പ്രവർത്തനം നേരത്തെ അവർ ഏറ്റെടുത്തിരുന്നു തയ്യാറാക്കുന്ന സാങ്കേതിക പദാവലി ജനാഭിപ്രായം കൂടി പരി ഗണിച്ച് മെച്ചപ്പെടുത്താനാണ് തീരുമാനം കൊച്ചി തുറമുഖത്ത് ക്രൂയിസ് വിനോദ സഞ്ചാരി കൾക്കായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ടൂറിസ്റ്റ് ബഗ്ഗി കേന്ദ്രമന്ത്രി മൻസുഖ് മൻഡാവിയ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അദ്ദേഹം തുറമുഖ ട്രസ്റ്റിലെ വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥരുമായി ആശയവിനി മയം നടത്തി വൈകീട്ട് കൊച്ചിയിൽ സ്പ്ത്ഭാരത് സേവാ യജ്ഞത്തിലും സൈക്കിൾ റാലിയിലും മൻഡാവിയ പങ്കെ ടുക്കും

നാളെ ഉച്ചമുതലാണ് ഔദ്യോഗിക പര്യ ടനം ന്യൂയോർക്കിലും ഹൂസ്റ്റണിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ചൊവ്വാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടി ക്കാഴ്ച നടത്തും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാംനബി ആസാദ് ഇന്ന് ശ്രീനഗർ സന്ദർശിക്കും

ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിലെ നിയമവിദ്യാർത്ഥിനി യുടെ പരാതിയിലാണ് അന്വേഷകസംഘം ഇയാളെ അറസ്റ്റ് ചെയ്തത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ചിന്മയാന ന്ദനെ കോടതിയിൽ ഹാജരാക്കും

മൈസൂരിൽ നിന്ന് പൊന്നാനിയിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിലെ യാത്രക്കാരൻ ചെറൂപ്പ സ്വദേശി ടി തെഹ്സിൽ ആണ് പിടിയിലായത് ബെങ്കളൂരു വിൽ നിന്നും ചരസ് വാങ്ങി കോഴിക്കോട്ടെത്തിച്ച് ഖത്തറി ലേക്ക് കടത്താനാണ് ഇയാൾ ശ്രമിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു

കരിപ്പൂർ ഹജ്ജ് ഹൌസ് ഉംറ തീർഥാടകർക്ക് കൂടി തുറന്നു നൽകാൻ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സ്ഥകാര്യ ഗ്രൂപ്പുകൾ മുഖേനയും മറ്റും കോഴിക്കോട് വിമാനത്താവളം വഴി ഉംറ നിർവ്വഹിക്കാൻ പോകുന്ന തീർഥാടകർക്കും ഇനി ഹജ്ജ് ഹൌസ് പ്രയോജനപ്പെടുത്താനാകും

ഉംറക്ക് പോകുന്നവർ ഇഹ്റാം കെട്ടുന്നതിന് ഇപ്പോൾ സ്ഥകാര്യ ഹോട്ടലുകളെയോ വിമാനത്താവളത്തെയോ ആണ് ആശ്രയിക്കുന്നത് ഹജ്ജ് ഹൌസിൽ സൌകര്യം ലഭിക്കുന്നതോടെ ഇത് ഒഴിവാക്കാനാകും

കാരശ്ശേരിയിൽ സംസ്ഥാനത്ത് ആദ്യമായി വൃവസായ സംരംഭകരുടെ ക്ലബ്ബ് രൂപീകരിച്ചു

ചാണകത്തിലെ മൂലകങ്ങളും സൂക്ഷ്മാഷ്മാണുക്കളും ഒട്ടും നഷ്ടപ്പെടാതെ കർഷകർക്ക് നല്ല വളം ലഭ്യമാക്കുന്നതിനായി പാപ്പിനിശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും ചേർന്നാണ് തുരുത്തിയിൽ പുതിയ പദ്ധതി തുടങ്ങിയത്

കോളേജിന് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച മന്ത്രി കെ

ഒളവിലം പ്രാഥമികാരോഗൃ കേന്ദ്രത്തിന് സമീപമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്

കപ്പലിലെ മറ്റൊരു ജീവനക്കാരനായ കാസർകോട് സ്വദേശി പ്രജിത്തും തിരിച്ചെത്തിയിട്ടുണ്ട്